നേതാവ് സജ്ജൻകുമാറിന്റെ അപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി

കൂട്ടുന്നതിനായി കേന്ദ്രം പുതിയ ഇ കൊമേഴ്സ് നയം രൂപീകരിക്കും

വിദേശകാര്യമന്ത്രി വങ് യി യുമായി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും

ജി പി മാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയാണ്

വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എല്ലാ വർഷവും ചേരുന്ന ഡി

പി മാരുടെ യോഗമാണ് ഇത്തവണ കേവാദിയയിൽ നടക്കുന്നത് രാജ്യത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗാണ് സമ്മേളനം ഇന്നലെ ഉദ്ഘാടനം ചെയ്തത് ജമ്മു കാശ്മീരിലെ സുരക്ഷ അതിർത്തി കടന്ന തീവ്രവാദം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ഗാന്ധിനഗറിലെ അദാലജ് ഗ്രാമത്തിൽ നാളെ ചെയ്യും നടക്കുന്ന പരിപാടിയിൽ ബി ജെ പി യിലെ വനിതാ പ്രവർത്തകരുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും

ഐകൃത്തിന്റെ പ്രത്യൂമ്പ് സന്ദർശിക്കണമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥീച്ചു

അപേക്ഷയ്ക്ക് പ്രസക്തിയില്ലെന്ന് കോടതി വൃക്തമാക്കി

മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നാണ് കലാപം ഉണ്ടായത്

ആഗോള ഉന്നതി ലക്ഷ്യമിട്ടുകൊണ്ട് വിവിധ സാമൂഹിക സ്ലാമ്പത്തിക സാംസ്കാരിക ഭൂമിശാസ്ത്ര മേഖലകളിൽ വികസ്നത്തിന് ഉൌന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് എസ് ഡി ജി നടപ്പാക്കുന്നത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും മത്സരാധിഷ്ഠിതവും തമ്മിൽ സഹകരണത്തിലൂന്നിയതുമായ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് നിതി ആയോഗ് പ്രതീക്ഷിക്കുന്നത്

അംഗീകൃത സ്സാർട്ടപ്പ് കമ്പനികളുടെ വ്യക്തിഗത പരാതികളും പ്രശ്നങ്ങളും സമിതി പരിശോധിച്ച് ശുപാർശ സമർപ്പിക്കുമെന്ന് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നികുതി പിരിച്ചെടുക്കുന്നതിന് കടുത്ത നടപടികൾ ഉണ്ടാവില്ല ഇത് സംബന്ധിച്ച വിജ്ഞാപനം വൃവസായ നയ പ്രോത്സാഹന വകുപ്പ് ഉടൻ പുറപ്പെടുവിക്കും ന്യൂഡൽഹിയിൽ ഇന്നലെ ചേർന്ന ഉന്നതതല സമിതി യോഗമാണ് തീരുമാനമെടുത്തത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വ്യാവസായിക്ക് വീക്സന നയകാര്യ സെക്രട്ടറി രമേശ് അഭിഷേക് ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം

കരട് ഈ ്കൊമേഴ്സ് നയത്തിൽ ഉയർന്ന ചില ആശങ്കകൾ ദൂരീകരിക്കുന്നതിനാണ് പുതിയ നയരൂപീകരണം ലോക വ്യാപാര സംഘടനയിലെ ചില സമ്പന്ന രാജൃങ്ങളും പുതിയ ആഗോള നയത്തിനായി ആവശ്യം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ നയ രൂപീകരണത്തിന് ഏറെ പ്രസക്തിയുണ്ട്

കാവേരി നദിയിലെ നിർദ്ദിഷ്ട ജലസംഭരണിക്കെതിരെയാണ് അവർ പ്രതിഷേധം പ്രകടിപ്പിച്ചത് ആന്ധ്രാപ്രദേശിന് പ്രത്യേക ധനസഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ടി ഡി പി അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി നടപടികൾ തുടരാനാവാതെ സ്പീക്കർ സുമിത്രാ മഹാജൻ ലോക്സഭ ഉച്ചുവരെ നിർത്തിവച്ചു

ഇത് ആദ്യമായാണ് ഇരു രാജ്യങ്ങളിലേയും നേതാക്കൾ തമ്മിൽ ഉന്നത തല കൂടിക്കാഴ്ച നടത്തുന്നത് സാംസ്കാരിക സഹകരണം ഇരു രാജ്യങ്ങളിലേയ്ക്കും ജനങ്ങൾക്ക് പ്രവേശിക്കുന്നതിനുള്ള തടസങ്ങൾ നീക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും

സിക്കിൾ ്ഐൽ അനിമിയ ഉൾപ്പെടെയുളള രക്തസംബന്ധമായ രോഗ്ങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് തെലങ്കാനയിൽ ആർട്ടിക്കുന്ന മികവിന്റെ കേന്ദ്രം രാഷ്ട്രപതി ഉദ്ഘാടനം സംസ്ഥാനത്തെ മുതിർന്ന ചെയ്യും

കോവിന്ദ് കൂടിക്കാഴ്ച നടത്തും

നോയിഡയിൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കോൺഗ്രസ്സിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി സീന ആന്റണി

വളർച്ച നിരക്ക് ഉയ്ർത്തുന്നതിൽ രാജ്യത്തെ ഔഷധമേഖല നൽകുന്ന സംഭാവന്കൾ സംതൃപ്തി നൽകുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു

കേന്ദ്ര ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അടിയന്തിരമായി തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രി ആർ വി ദേശ് പാണ്ഡെ കേന്ദ്ര കൃഷി മന്ത്രി രാധാ മോഹൻസിംഗിന് കത്തയച്ചു സംസ്ഥാനത്തെ നാമമാത്ര കർഷകർക്ക് വരൾച്ചമൂലം വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് നിലവിലെ വ്യവസ്ഥകൾ പരിഷ്കരിച്ച് കൃഷിനാശം സംഭവിച്ചു ശില്ലാ കർഷകർക്കും നഷ്ടപരിഹാരം നൽകാൻ നട്ടപ്ടിക്യ്ടുക്കണമെന്ന് കത്തിൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

നിങ്ങളുടെ നാവികസേനയെ അറിയുക് എന്ന പ്രചരണ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് യുദ്ധക്കപ്പൽ സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകുന്നത്

വേതന കരാറുകൾ നടപ്പാക്കണം തുടങ്ങിയ സേവന ആവശൃങ്ങൾ ഉന്നയിച്ചാണ് രാജൃത്തൊട്ടാകെയുള്ള മൂന്നരലക്ഷം ബാങ്ക് ഓഫീസർമാർ പണിമുടക്കുന്നത്

കഴിഞ്ഞയാഴ്ച നടന്ന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിനൊപ്പം ശ്രീ മുഹമ്മദ് അലിയും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു മുൻ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം

ക്രമസമാധാന പാലനത്തിന് കൈകാര്യം ഉയർന്ന പരിഗണന നൽകുമെന്ന് ശ്രീ അലി പറഞ്ഞു

ഉടൻ വാദം ക്കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്

കെട്ടിടത്തിൽ പാകിസ്ഥാന് യാതൊരു അവകാശങ്ങളുമില്ലെന്ന് വിദേശകാരൃ വക്താവ് രവീഷ്കുമാർ ട്വീറ്ററിൽ അറിയിച്ചു ജിന്ന ഹൌസ് പുതുക്കി പണിത് പ്രധാന പരിപാടികൾക്ക് വേദിയാകും